സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജ് ഈടില്ലാതെ മൂന്ന് ലക്ഷം കോടി രൂപ വായ്പ അനുവദിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി

എഫ് ക്യാന്റീനുകളിൽ തൃദ്ദേശീയ ഉത്പന്നങ്ങൾ മാത്രം വിൽപ്പന നടത്തുമെന്ന് കേന്ദ്രമൃന്തി ്അമിത്ഷാ

വന്ദേ ഭാരത് പദ്ധതിയൂട്ടെ ഭാഗമായി രണ്ട് വിമാനങ്ങൾ കൂടി കരിപ്പൂരിലെത്തി

ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തിലേയ്ക്ക്

സ്വന്തം കാലിൽ നില്കാൻ രാജ്യത്തെ പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി പാർവ്വതി വിജയൻ

നിർമ്മാണ സേവന മേഖലകൾ ഏകീകരിക്കും

വായ്പാ കാലാവധി നാല് വർഷമായിരിക്കും

വായ്പ കിട്ടാക്കടമായി പ്രഖ്യാപിച്ച വ്യവസായങ്ങൾക്കും അർഹതയുണ്ടാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എഫ് ക്യാന്റീനുകളിൽ ഇനി മുതൽ സ്വദേശി ഉത്പന്നങ്ങൾ മാത്രം വില്പന നടത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ

സി എം

കേരളത്തിൽ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ സർവ്വേ നടത്തും

ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേയ്ക്കും ദുബായിയിൽ നിന്ന് ഭുവനേശ്വർ ന്യൂഡൽഹി എന്നിവിടങ്ങളിലേയ്ക്കുമാണ് വിമാനങ്ങൾ എത്തുന്നത്

വന്ദേ ഭാരത് പദ്ധതിയുടെ കീഴിൽ ദുബായിയിൽ നിന്ന് ഒഡീഷയിലെത്തുന്ന ആദ്യ വിമാനം കൂടിയാണ് ഇത്

ഐ

കേരളം ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ മാത്രമായിരിക്കും രണ്ടാംഘട്ടയാത്രയിൽ കൊച്ചിയിലേക്ക് കൊണ്ടു വരിക

ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും ഈ വിഷയങ്ങളുടെ മാർക്ക് നിശ്ചയിക്കുക

ലോക്ക് ഡൌൺ നിയന്ത്രണങ്ങളുടെ ഇളവിന്റെ പശ്ചാത്തലത്തിൽ വ്യാപരസ്ഥാപനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന രണ്ട് കടകളുടെ പ്രവർത്തനാനുമതി താത്കാലികമായി നിർത്തിവച്ചു

സാൻഫ്രാൻസിസ്കോ ലണ്ടൻ മോസ്കോ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനങ്ങളുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി വി

സംസ്ഥാനം ആവശ്യപ്പെടുകയാണെങ്കിൽ ഗൾഫിൽ നിന്നും കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലേക്കും പ്രതിദിന സർവ്വീസുകൾ നടത്താൻ കേന്ദ്രം തയ്യാറാണ്

മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മൂന്ന് പ്ഷേർക്കും വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള രണ്ട് പേർക്ക് വീതവും കോട്ടയം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള് ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ നാല്ക് പേർ വിദേശത്ത് നിന്നും രണ്ട് പേർ ചെന്നൈയിൽ നിന്നും വൃന്നിവ്രാണ്

വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു

എൻ ആർ നമ്പർ നൽകി പാസ് എടുക്കേണ്ടതാണെന്ന് നോർക്ക റൂട്ട്സ് റസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീ

ജില്ലയിൽ കോവിഡ് നെഗറ്റീവ് ആകാൻ ഇനി രണ്ടു പേർ മാത്രമാണ് ഉള്ളത്

ഇവർ ആശുപത്രിയിൽ ചികിൽസയിലാണ്

ഒരാൾ കണ്ണൂർ സ്വദേശിയും ഒരാൾ മലപ്പുറം സ്വദേശിയുമാണ്

മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് മരണസംഖ്യ കൂടുതൽ

ഡൽഹിയിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്

പതിനാറര ലക്ഷം പേർക്ക് രോഗമുക്തി

ഭക്തർക്ക് ഓൺലൈൻ വഴി വഴിപാടുകൾ നടത്താൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

ഒരു കോടിയിലധികമാണ് വുഹാനിലെ ജനസംഖ്യ

അതേസമയം വന്ദേ ഭാരത് പ്പദ്ധിരിയുടെ ഭാഗമായി ചിക്കാഗോയിൽ നിന്നുള്ള വിമാനം ഇന്നലെ ക്ലെന്നെയിൽ എത്തി